കൂടുതൽ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത്

കോഴിക്കോട് ജില്ലയിൽ രോഗസ്ഥിരീകരണ നിരക്ക് സംസ്ഥാന ശരാശരിയെക്കാൾ കൂടുതൽ ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം നാളെ പൂനെയിൽ

പ്രമുഖ പാർട്ടികളുടെയും മുന്നണികളുടെയും ദേശീയ നേതാക്കളടക്കം പ്രചാരണ രംഗത്ത് സജീവമാണ്

ജെ

ദേശീയ അധ്യക്ഷൻ ജെ

നദ്ദ ഇന്ന് കണ്ണൂർ തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ എൻ

എ

കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് എത്തും നാളെ വർക്കല ഇരിങ്ങാലക്കുട എറണാകുളം എന്നിവിടങ്ങളിൽ അദ്ദേഹ്ഹം എൻ ഡി എ

മുരളീധരൻ തൃത്താലയിൽ ബി ജെ പി പ്രഷാർണ് യോഗത്തിലും റോഡ് ഷോയിലും പങ്കെടുത്തു

എഫിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എറണാകുളത്ത് പ്രചാരണം നടത്തി

ഐ എം ജനറൽ ക്സ്ക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് ്കാരാട്ടും പ്രചാരണത്തിനായി കേരളത്തിൽ സജിവമാണ്

ഡി എഫിന്റെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ പരൃടനം നടത്തി നാളെ കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദും മറ്റന്നാൾ രൺദീപ് സിങ്ങ് സുർജേവാലയും എത്തുന്നുണ്ട്

പി നദ്ദ കണ്ണൂർ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മന്ത്രിമാരിലേക്ക് എത്തുന്നതിനാലാണ് സംസ്ഥാന സർക്കാർ ഏജൻസികൾക്കെതിരെ തിരിയുന്നതെന്ന് ബി ജെ

ദേശീയ അധ്യക്ഷൻ ജെ

കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിലെ എൻ

സ്ഥാനാർത്ഥി സി

പദ്മനാഭന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്നും അദ്ദേഹം ധർമ്മടത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആരോപിച്ചു

സംസ്ഥാനത്ത് ഇരട്ടുവോട്ട് എവിടെയുണ്ടെങ്കിലും അത് പരിശോധിക്കപ്പെടണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വാർത്തസമ്മേളനത്തിൽ പറഞ്ഞു

ഇരട്ട വോട്ടിനെതിരെയുള്ള തന്റെ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഇടത് വലത് മുന്നണികളാണ് ഇരട്ടവോട്ട് ചേർക്കുന്നതെന്ന് വ്യക്തമായതായും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഇരട്ടവോട്ട് സംബന്ധിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ

മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി സ്കൽകി

ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി കാസർഗോട്ടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി

കണ്ണൂർ ഇൻട്രോ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റായുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷ്യൂറ്റീങ്ങ് കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചു

ഇതിന്റെ പേരിൽ കോൺഗ്രസും ബി ജെ

യും സംസ്ഥാന സർക്കാരിനെതിരെ അഴിച്ചുവിടുകയാണെന്നും കൊട്ടാരക്കര കുപ്രചരണം മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു

ജോയിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം വിലയിരുത്തി

ഇതിനായി സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും കൂടുതൽ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഒരുക്കും

തെരഞ്ഞെടുപ്പ് ഉത്സവം പൊതു പരീക്ഷകൾ തുടങ്ങിയവ വരുന്ന സാഹചരൃത്തിൽ വാക്സിൻ സ്വീകരിച്ച് സുരക്ഷിതരാകേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി

ഇന്ന് ഒരു പുതിയ ഹോട്ട് സ്പോട്ടാണുള്ളത് ഒരു പ്രദേശത്തേയും ഒഴിവാക്കിയിട്ടില്ല

കോഴിക്കോട് കോവിഡ് ഇൻട്രോ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സംസ്ഥാന ശരാശരിയേക്കാൾ വളരെ കൂടുതലായ സാഹചരൃത്തിൽ കടുത്ത നിയന്ത്രണങ്ങളേർപ്പെടുത്താൻ ജില്ലാ കളക്ടർ നിർദേശം നൽകി

കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ജനങ്ങൾ കൃത്യമായി മാസ്ക്ക് ധരിക്കണമെന്നും മന്ത്രി കോഴിക്കോട് വ്യക്തമാക്കി ഓശാന നാളെ ഓശാന ഞായർ ഓശാന ആചരണത്തോടെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകും നാളെ പ്രത്യേക പ്രാർത്ഥനകളും കൂരൂത്തോല പ്രദക്ഷിണവും വിവിധ ദേവാലയങ്ങളിൽ നടക്കും അടുത്ത മാസം നാലാം തീയതിയാണ് ഈസ്റ്റർ

പുതുക്കിയ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നതിനാണ് ക്രമികരണം

കാലാവസ്ഥാ വൃതിയാനത്തിന്റെയും ആഗോള താപനത്തിന്റെയും കെടുതികളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനാണ് ഭൌമ മണിക്കൂർ ആചരണം

പ്രാദ്യേക്ക് സമയം രാത്രി എട്ടര മുതൽ ഒമ്പതര വരെ വൈദ്യുതിറ്റ്വിളക്കുകൾ അണച്ചും കമ്പ്യൂട്ടർ ടെലിവിഷൻ തുടങ്ങിയൂ ഇ്ലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതെയും ളക്ർജോപയോഗം പരമാവധി കുറച്ചാണ് ഭൌമ മണിക്കൂർ ആചരിക്ക്കുന്നത് ക്രിക്കറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ക്രിക്കറ്റ് ഏകദിനം നാളെ പൂനെയിൽ നടക്കും

ഡോക്ടർമാരുടെ നിർദ്ദേശ പ്രകാരം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് താൻ വീട്ടിൽ കോറന്റിനിൽ കഴിയുകയാണെന്ന് സച്ചിൻ ട്വിറ്ററിൽ കുറിച്ചു